ത സംസ്ഥാനത്ത് വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്ന കാര്യം ഗൌരവമായി പരിഗണിക്കേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത വികസനവും പരിസ്ഥിതിയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനെപ്പറ്റി വ്യക്തമായ ദർശനം എം പി വീരേന്ദ്രകുമാറിനുണ്ടായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ആറ് വർഷങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ച തുറന്ന സമീപനവും പരിഷ്കരണങ്ങളും നിക്ഷേപകർക്ക് സുതാര്യവും മത്സരാത്മകവും അനുകൂലവുമായ സാഹചര്യം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അവസരങ്ങളും തെരഞ്ഞെടുക്കൽ സ്വാതന്ത്ര്യവും തുറന്ന സമീപനവും സംയോജിക്കുന്നതുകൊണ്ട് പ്രത്യാശയോടെയാണ് ലോക സമൂഹം ഇന്ത്യയെ കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ അമേരിക്ക ബിസിനസ്സ് കൌൺസിലിന്റെ ഇന്ത്യ ഐഡിയാസ് വെർച്വൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയിൽ അടുത്തകാലത്ത് നടപ്പാക്കിയ പ്രധാന പരിഷ്കരണങ്ങൾ അതിനെ മികച്ച നിക്ഷേപ മേഖലയാക്കി മാറ്റിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു രുമ സംസ്ഥാനത്ത് വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്ന കാര്യം ഗൌരവമായി പരിഗണിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശം പല ഭാഗങ്ങളിൽ ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ നിന്നും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ രോഗവ്യാപനം തുടരുകയാണെങ്കിൽ അതേപ്പറ്റി ആലോചിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് കീം പ്രവേശന പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമെതിരെ കൂട്ടം കൂടിയതിന്റെ പേരിൽ കേസെടുത്ത നടപടി ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നും വിദ്യാർത്ഥികളല്ല അതിന് ഉത്തരവാദികളായി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഒന്നിച്ച് ഇറങ്ങി വരുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയിരുന്നത് ബന്ധപ്പെട്ട അധികൃതരായിരുന്നുവെന്നും ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രേര കോവിഡ് രോഗവ്യാപനത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നേരിടാൻ കേരളം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

വിശദാംശങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

യു വെന്റിലേറ്ററുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്

കേരളം കോവിഡ് രോഗമുക്തിയുടെ കാര്യത്തിൽ പിന്നിലാണെന്ന പ്രചാരണം തെറ്റാണ് രോഗം ബാധിച്ചവരെ ആശുപത്രികളിൽ നിന്ന് വിട്ടയയ്ക്കുന്നതിൽ നിന്ന് കേരളം സ്വീകരിച്ചിരിക്കുന്ന നയം ദേശീയ നയത്തിൽനിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൽ രണ്ട് തവണ ടെസ്റ്റ് നെഗറ്റീവായവരെ മാത്രമാണ് ഡിസ്ചാർജ്ജ് ചെയ്യുന്നത്

സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർക്കും മികച്ച സുരക്ഷയൊരുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സാമൂഹിക അകലം ഉൾപ്പെടെ സുരക്ഷാ പ്രോട്ടോകോൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപന ഉടമകൾക്കെതിരെ നിയമ നടപടിയെടുക്കാൻ എല്ലാ ജില്ലകളിലും അഡീഷണൽ എസ് പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രോസിക്യൂഷൻ വിഭാഗത്തിന് രൂപം നൽകിയിട്ടുണ്ട്

ആലുവ നഗരസഭയും സമീപ പഞ്ചായത്തുകളായ ചെങ്ങമനാട് കരുമാലൂർ കടുങ്ങല്ലൂർ ആലങ്ങാട് ചൂർണിക്കര എടത്തല കീഴ്മാട് എന്നിവയാണ് ക്ലസ്റ്ററിൽപ്പെടുന്ന പ്രദേശങ്ങൾ

ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടില്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കൊഴികെ ഗതാഗതം അനുവദിക്കില്ല രുമ കൊല്ലത്ത് സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം കൂടുന്നത് ഒഴിവാക്കാൻ ഊർജ്ജിത ശ്രമങ്ങൾ ആരംഭിച്ചു ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൽ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് രുമ കോവിഡ് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രത്തിനായി ഫ്ലാറ്റ് ഏറ്റെടുത്ത നടപടിക്കെതിരെ കണ്ണൂർ നഗരത്തിലെ രണ്ട് ഉടമകൾ നൽകിയ റിട്ട് ഹർജി ഹൈക്കോടതി തള്ളി സ്വകാര്യ വ്യക്തിയുടെ താൽപ്പര്യത്തേക്കാൾ പ്രധാനം പൊതുതാൽപ്പര്യമാണെന്നും രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് നടപടി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതെന്നും ഗവൺമെന്റ് വാദിച്ചു ദേദ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലെ ജീവനക്കാർക്കായി ഇന്നലെ നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ എല്ലാവരുടെയും ഫലം നെഗറ്റീവ് ആയി

ദേദ കോട്ടയം മെഡിക്കൽ കോളജിലെ നേത്ര രോഗ വിഭാഗവും ഗൈനക്കോളജി ഏഴാം വാർഡും കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചു അസ്ഥിരോഗ വിഭാഗം വാർഡ് നേരത്തേ അടച്ചിരുന്നു

പി വീരേന്ദ്രകുമാറെന്ന് ഉപരാഷ്ട്രപതി എം

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ജയറാം രമേഷ് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നടൻ കമൽഹാസൻ നടി ജയപ്രദ പരിസ്ഥിതി പ്രവർത്തക വന്ദനശിവ തുടങ്ങിയവർ സംസാരിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ സല്യൂട്ട് സ്വീകരിക്കും

ഈ മാസം ഒന്നിന് ആരംഭിച്ച പദ്ധതി നവംബർ വരെ തുടരുമെന്നും കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും പ്രവർത്തന അവലോകനം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയായേക്കും